ഇന്ത്യക്കായി നിർമ്മിച്ച റഫാൽ ്യൂദ്ധവിമാനം ഏറ്റുവാങ്ങുന്നതിനായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഫ്രാൻസിലേയ്ക്ക്

കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ രഥോത്സവം അൽപസമയത്തിനകം തുടങ്ങും

മുംബൈയിൽ അരെ കോളനിയിലെ മരങ്ങൾ മുറിച്ചുമാറ്റുന്നത് സുപ്രീംകോടതി തടഞ്ഞു

ലോക പവർലിഫ്റ്റിംഗ് ചാമ്പൃൻഷിപ്പിൽ ഇന്തൃയുടെ സുരേന്ദർസിംഗ് മൂന്ന് ലോക റിക്കാർഡുകൾ നേടി

കൂടുതൽ വിവരങ്ങളുമായി അനിൽകുമാർ

ഇരു സംസ്ഥാനങ്ങളിലും ബി ജെപിയാണ് ഭരണകക്ഷി

ജെ

ജെ പി ശിവസേന എൻ സി

കോൺഗ്രസ് പ്ലാർട്ടികളാണ് മഹരാഷ്ടയിൽ മത്സരരംഗത്തുള്ളത്

ഔദ്യോഗിക് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിനെ തുടർന്നാണ് റിബലായി പൽരൂം മത്സരിക്കുന്നത്

വൈകിട്ട് മൂന്നു മണിവരെയാണ് പത്രിക പീൻവലിക്കാനുള്ള സമയം അനുവദിച്ചിട്ടുള്ളത് ഹരിയാനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കൾ പ്രചാരണ രംഗത്തുണ്ട് കേന്ദ്രമന്ത്രി അമിത്ഷാ ബി ജെ

വർക്കിംഗ് പ്രസിഡന്റ് ജെ

നദ്ദ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവരും വിവിധ റാലികളിൽ പങ്കെടുക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി

രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഫ്രാൻസിലെത്തുന്ന ശ്രീ രാജ്നാഥ് സിംഗ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ചർച്ച നടത്തും വിമാനം ഏറ്റുവാങ്ങിയശേഷം നവരാത്രിയോട് അനുബന്ധിച്ചുള്ള പൂജകളിൽ അദ്ദേഹം പങ്കെടുക്കും പിന്നാലെ റാഫേൽ യുദ്ധ വിമാനത്തിൽ പരീക്ഷണ പറക്കൽ നടത്തും

ഫ്രാൻസിലെ പ്രതിരോധ വൃവസായ മേഖലയിലെ കമ്പനികളുടെ സി ഇ ഒ

സി

വീട്ടുതടങ്കലിൽ ആയതിന് ശേഷം ഇതാദ്യമായാണ് ഒമർഅബ്ദുള്ളയെ കാണാൻ എൻ സി

നിലവിലെരാഷ്ട്രീയ സാഹചര്യവും ബ്ലോക്ക് ഡവല്പ്മെന്റ് കൌൺസിൽ തെരഞ്ഞെടുപ്പും സംബന്ധിച്ച കാര്യങ്ങൾ ഇരുനേതാക്കളുമായി ചർച്ച നടത്തിയതായി എൻ സി

സൈനിക പോസ്റ്റുകൾക്കും ഗ്രാമ പ്രദേശങ്ങൾക്കും നേരെയാണ് ഇന്നലെ പാക് സൈന്യം വെടിഉതിർത്ത് കത്വ പൂഞ്ച് രജൌരി എന്നീ ജില്ലകളിലെ അതിർത്തിയിൽ ഉണ്ടായ വെടിവെയ്പ്പിൽ ആളപായമില്ല

വെടിവെയ്പ്പ് മണിക്കൂറുകൾ നീണ്ടു് നീന്നു

അതിർത്തി കടന്നുള്ള ഭീകരവാദവും രാജ്യത്തിനകത്ത് ഭീകരപ്രവർത്തനങ്ങൾക്കുള്ള പണമിടപാടും നിയന്ത്രിക്കാൻ സമഗ്ര പദ്ധതി നടപ്പാക്കണമെന്ന് എഫ്

എഫ് പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടു

നികുതിദായകർക്കുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുന്നതിനും കൂടുതൽ സൌകര്യങ്ങൾ ഉറപ്പാക്കുന്നതിനും ഇ അസ്സസ്മെന്റ് സെന്റർ

അസം മുഖ്യമന്ത്രി സർബാനന്ദ സൊനോവാൾ ഉൾപ്പെടെ പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു

കനത്ത മഴയെ തുടർന്ന് ഇന്ന് രാവിലെയാണ് പാലം തകർന്ന് വീണത് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കവെ പാലം മധ്യമാഗത്ത് പിളർപ്പുണ്ടായി തകർന്ന് വീഴുകയായിരുന്നു പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റി

കൊല്ലൂർ മൂകാംബിക ഉൾപ്പെടെയുള്ള രാജ്യത്തെ പ്രമുഖ ദേവി ക്ഷേത്രങ്ങളിൽ വലിയ ഭക്ത ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്

ദൂർഗാദേവി തിലോത്തമയുടെ രൂപം ധരിച്ച് അസുര രാജാവായ മഹിഷാസുരനെ വധിച്ച ദിവസമാണ് മഹാനവമി എന്നാണ് ഐതിഹ്യം

ദുർഗാഷ്ടമി ദിനമായ ഇന്നലെയും ക്ഷേത്രങ്ങളിൽ കനത്ത്രിരിക്കായിരുന്നു

ചില സംസ്ഥാനങ്ങളിൽ ഈ ദിവസം ദസറയായും ആഘോഷിക്കുന്നു കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നവരാത്രി ആ്ഘോഷങ്ങളുടെ ഭാഗമായുള്ള രഥോത്സവം അൽപസമയത്തിനകം തുടങ്ങും

നാളെ പുലർച്ചെ മൂന്ന് മണിയ്ക്ക് നട തുറക്കുന്നതോടെ വിദ്യാരംഭം നടക്കും അയ്യായിരത്തോളം കുരുന്നുകളാണ് മൂകാംബികയിൽ വിദ്യാരംഭത്തിനായി പേര് നൽകിയിരിക്കുന്നത് കേരളത്തിൽ കോട്ടയം പനച്ചിക്കാട് ക്ഷേത്രം ഉൾപ്പെടെയുളള ദേവീ ക്ഷേത്രങ്ങളിലും തിരൂർ തുഞ്ചൻ പറമ്പ് തിരുവനന്തപുരം ഐരാണിമുട്ടം തുഞ്ചൻ സ്മാരകം ഉൾപ്പെടെയുള്ള സാംസ്കാരിക കേന്ദ്രങ്ങളിലും വിദ്യാരംഭത്തിന് വിപുലമായ സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്

ന്യൂസ്ഡെസ് ആകാശവാണി

പ്രദേശത്ത് തൽസ്ഥിതി തുടരാൻ മഹാരാഷ്ട്ര ഗവൺമെന്റിനോട് ഉത്തരവിട്ട കോടതി പരിസ്ഥിതി മന്ത്രാലയത്തെ കേസിൽ കക്ഷി ചേരാനും നിർദ്ദേശിച്ചു

നിയമ വിദ്യാർത്ഥി നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസുമാരായ അരുൺ മിശ്ര അശോക് ഭൂഷൺ എന്നിവരടങ്ങുന്ന ബഞ്ച് ഉത്തരവ് പുറപ്പെട്ടുവിച്ചത്

സമരം ചെയ്യുന്ന സംഘടനയുമായി ചർച്ചകൾക്കില്ലെന്ന് മുഖ്യമന്ത്രി കെ

ഗവൺമെന്റ് യാതൊരു നീക്കുപോക്കിനും തയ്യാറല്ലെന്നും നിശ്ചിത ദിവസത്തിനുള്ളിൽ ജോലിയിൽ ഒരുകാരണവശാലും തിരിച്ചെടുക്കില്ലെന്നും മുഖ്യമന്ത്രി വൃക്തമാക്കി

പാറ്റ്നയിലെ താഴ്ന്ന പ്രദേശങ്ങളിലധികവും ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്

റാണിനല്ലക്കും റോഹ്തങ് പാസിനും ഇടയിലാണ് മണ്ണു വീണത് ഇതോടെ ലേ ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഹിമാചൽപ്രദേശിലെ ലാഹൌൽ സ്പിത്തി കുളു മേഖലകളിലും കനത്ത മഞ്ഞു വീഴ്ചയാണ് അനുഭവപ്പെടുന്നത്

അഞ്ചു പേരെ ജീവനോടെ പിടികൂടി ലിബറേഷൻ ഓഫ് റുവാണ്ട ഫൈറ്റേഴ്സ് എന്ന സംഘടനയിൽപ്പെട്ടവരാണ് കൊല്ലപ്പെട്ടത്

ഇതിന് പിന്നിൽ റുവാണ്ട ഫൈറ്റേഴ്സ് ആണെന്ന് കണ്ടെത്തിയിരുന്നു

ജോളി നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഷാജുവിനെ വീണ്ടും ചോദ്യം ചെയ്യുന്നത്

താമരശ്ശേരി മുൻ ഡെപ്യൂട്ടി തഹസീൽദാറേയും ചോദ്യം ചെയ്യാനായി ക്രൈംബ്രാഞ്ച് വിളിപ്പിച്ചിട്ടുണ്ട് ഭൂമിയിടപാടിൽ ജോളിക്ക് വഴിവിട്ട് സഹായം നൽകിയെന്ന ആരോപണത്തിലാണ് മുൻ ഡെപ്യൂട്ടി തഹസീൽദാരെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചത്

റോയിയുടേത് ആത്മഹത്യാണെന്നു കണ്ടെത്തിയത് രാമനുണ്ണിയായിരുന്നു